കോവിഡ് നേരിടുന്നതിൽ ഉദാസീനത പാടില്ലെന്നും പ്രധാനമന്ത്രി

ത സംസ്ഥാനത്ത് മിന്നൽ സവിശേഷ ദുരന്ത മുന്നറിയിപ്പ് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

വാർത്തകൾ വിശദമായി മുദ്ര യോജനയിൽ ഏഴ് കോടിയോളം വനിതകൾ മൂന്ന് ലക്ഷം കോടി രൂപയുടെ വായ്പ പ്രയോജനപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഗ്രാമീണ മേഖലയിലെ സ്വയം തൊഴിൽ കണ്ടെത്തൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ മുദ്ര പദ്ധതിക്ക് സാധ്യമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ ഡോ ബാലാസാഹിബ് വിഖെ പാട്ടീലിന്റെ ആത്മകഥാ പ്രകാശനം കോൺഫറൻസിങ്ങിലൂടെ നടത്തുകയായിരുന്നു വീഡിയോ പ്രധാനമന്ത്രി നേരത്തെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതിരുന്ന രണ്ടര കോടിയോളം ചെറുകിട കർഷക കുടുംബങ്ങൾക്ക് പുതിയതായി കാർഡുകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വെളിപ്പെടുത്തി കോവിഡിനെ നേരിടുന്നതിൽ ഒരുതരത്തിലും ഉദാസീനത കാണിക്കരുതെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടു രോഗ വ്യാപനം ഏറ്റവും കൂടുതലായി നേരിടുന്ന മഹാരാഷ്ട്രയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം നിർദേശിച്ചു എല്ലാവരും മുഖാവരണങ്ങൾ ഉപയോഗിക്കണമെന്നും കൈകൾ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് എപ്പോഴും ശുചിയാക്കി വെക്കണമെന്നും സാമൂഹ്യ അകലം കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

വിവിധ വകുപ്പുകളുടെ സംയുക്ത പ്രവർത്തനത്തിലൂടെ തിരുവനന്തപുരത്തെ രോഗബാധ കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ആയിരത്തിലേറെ പേർക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു

രുഭ കോവിഡ് നിയന്ത്രങ്ങൾ മൂലം നീറ്റ് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്നവർക്കായി സുപ്രീം കോടതി നിർദേശിച്ച പരീക്ഷ ഇന്ന് നടക്കും

മണിക്കൂറുകൾക്കിടയിൽ മരിച്ച കല്ലാളത്തിൽ ജാനകിക്കും മകൻ ജയരാജനുമാണ് രോഗം സ്ഥിരീകരിച്ചത് രും കൌൺസിലർമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കണ്ണൂർ മട്ടന്നൂർ നഗരസഭാ ഓഫീസിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ആറളത്ത് രോഗികളുടെ എണ്ണം കൂടിയതിനെ തുടർന്ന് കീഴ്പള്ളി ടൌൺ മൂന്നു ദിവസത്തേക്ക് അടച്ചിട്ടു

രാമകൃഷ്ണൻ

രുഭ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കണ്ണൂരിൽ ആരംഭിച്ച നോ മാസ്ക് നോ എൻട്രി സീറോ കോൺടാക്റ്റ് ചലഞ്ച് ക്യാമ്പയിൻ എന്നിവയ്ക്ക് വ്യാപാരി സമൂഹം പിന്തുണ പ്രഖ്യാപിച്ചു കോവിഡ് പ്രതിരോധ ബോധവൽക്കരണ പോസ്റ്ററുകളും ബോർഡുകളും സ്ഥാപിക്കാനും വ്യാപാരി വ്യവസായി സംഘടനകൾ മുന്നോട്ടുവന്നു രും വായ്പാ മൊറട്ടോറിയം കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചേക്കും രണ്ടു കോടി രൂപയുടെ വരെ വായ്പകൾക്ക് മൊറട്ടോറിയം കാലത്ത് കൂട്ടുപലിശ ഇൌടാക്കില്ലെന്നും അത് ഗവൺമെന്റ് വഹിക്കുമെന്നും ധനമന്ത്രാലയം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

വെള്ളിയാഴ്ച്ച വരെ പലയിടത്തും മിന്നലോടുകൂടിയ മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉച്ചക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയാണ് മിന്നൽ സാധ്യത കൂടുതലും മലയോര മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ആകാശം മേഘാവൃതമാകുന്ന സാഹചര്യങ്ങളിൽ കുട്ടികളെ തുറസായ സ്ഥലങ്ങളിലേക്ക് അയക്കരുതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു രുര സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തെ തുടർന്നാണ് ഇത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ യെലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്ത് നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് ആവശ്യപ്പെട്ടു

രുര ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയം

ദുബായിൽ ഇന്ന് വൈകീട്ട് ഏഴരക്ക് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും ദ്ദേ ഹരിത കേരളം മിഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തീർത്ത ആയിരത്തിലേറെ പച്ചത്തുരുത്തുകളുടെ പൂർത്തീകരണം നാളെ രാവിലെ ഓൺലൈനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കും പച്ചത്തുരുത്ത് പദ്ധതിയുടെ അവലോകന റിപ്പോർട്ടും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും

സീമ അറിയിച്ചു ദ്ദേ സംസ്ഥാന ജലഗതാഗത വകുപ്പ് പുതുതായി നിർമ്മിച്ച വാട്ടർ ടാക്സിയും കാറ്റാമറൈൻ ബോട്ട് സർവ്വീസും നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും ജലഗതാഗതത്തിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ സഹായിക്കുന്ന വാട്ടർ ടാക്സി ഏറ്റവും സുരക്ഷിതവും ആധുനിക സൌകര്യങ്ങളും ഒരുക്കിയതാണെന്ന് സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി

രുമ കൊച്ചിയിൽ വഴിയോരക്കച്ചവടം നടത്തിവന്ന ട്രാൻസ്ജെൻഡർ സജന ഷാജിയെയും സുഹൃത്തുക്കളേയും അധിക്ഷേപിക്കുകയും കച്ചവടം തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ തൃപ്പൂണിത്തറ പൊലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു

ശൈലജയുടെ ഇടപെടലിനെ തുടർന്ന് സജന ഷാജിക്ക് വനിതാ വികസന കോർപ്പറേഷൻ മുഖേന വിൽപ്പന കേന്ദ്രം ഒരുക്കാൻ നടപടി എടുത്തിട്ടുണ്ട്

നൂറു വർഷം മുമ്പ് നിർമ്മിച്ച മുൻസിപ്പിൽ ഓഫീസ് പൊളിച്ച് അഞ്ച് നിലയിൽ പുതിയ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്

പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് ജോസ്

രും കേരളാ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈന്റിന്റെ അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി വൈകീട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ബി

നാളെയാണ് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം രുര വേണാട് എക്സ്പ്രസിന്റെ കൊല്ലം ജില്ലയിലെ മയ്യനാട് സ്റ്റോപ്പ് പുനസ്ഥാപിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി എൻ

റെയിൽവെ ബോർഡ് ചെയർമാനുമായും അംഗങ്ങളുമായും നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇക്കാര്യത്തിൽ ധാരണയായത് ദ്ദേ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു അതിനിടെ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു